ഹർഷ്വർദ്ധന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിതല സമിതി സ്ഥിതി വിലയിരുത്തി

മന്ത്രാലയകേന്ദ്ര സമിതി സംസ്ഥാനങ്ങളിലെ പര്യടനം തുടരുന്നു

ന് മികച്ച പൊ്തുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിൽ കോവിഡ് വ്യാപനം തടയാൻ സഹായിച്ചതെന്ന് മുഖ്യമന്ത്രി

പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന്

കോവിഡ് ബാധ ഭേദമാകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നതായി ആരോഗൃമന്ത്രാലയം അറിയിച്ചു

ആകെ രോഗബാധിതരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഏഴ് ശതമാനം മാത്രമാണ്

അരുണാചൽപ്രദേശ് ഗോവ മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങൾ കൊറോണ മുക്തമായതായി കേന്ദ്ര ആരോഗൃ കുടുംബക്ഷേമ മന്ത്രാലയം നല്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു

കോവിഡിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ എല്ലാ ജില്ലകൾക്കും നിർദ്ദേശം നൽകിയതായി മന്ത്രിതല സംഘം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചു രോഗനിർണയം സംബന്ധിച്ചും ആവശ്യമായ പരിശോധനാ കിറ്റുകളുടെ ലഭ്യതയും യോഗത്തിൽ വിലയിരുത്തി

രോഗവ്യാപനം പരിശോധന ചികിത്സ തുടങ്ങിയവ സംബന്ധിച്ച് നഗരസഭാ ഉദ്യോഗസ്ഥരുമായും സംഘം ഹൈദ്രാബാദിൽ എത്തിയ കേന്ദ്രസംഘം തെലങ്കാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സന്ദർശിച്ച് വിലയിരുത്തി സംസ്ഥാന ആരോഗ്യവകുപ്പ് സ്വീകരിച്ച പ്രതിരോധ നടപടികളെ കുറിച്ചും ചർച്ച ചെയ്തു അഹമ്മദാബാദിലും സൂററ്റിലും കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം തുടരുകയാണ് അതിനിടെ ചെന്നൈ മധുര കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നാല് ദിവസത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ നിലവിൽ വന്നു

വെന്റിലേറ്ററുകളുടെ നീർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്

പരിശോധനാ കിറ്റുകളുടെ ലഭൃത ഹോട്ട്സ്പോട്ടുകളിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ തുടങ്ങിയവയും ചർച്ച ചെയ്തു

സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്നും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും ഈ സംഘടനകൾക്ക് സഹായം ലഭ്യമാക്കുന്നുണ്ട്

ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് നിലവിലെ സ്ഥിതിഗതികളും മെയ് മൂന്നിന് അവസാനിക്കുന്ന ലോക്ഡൌൺ രണ്ടാം ഘട്ടത്തിനു ശേഷമുള്ള നടപടികളും യോഗും പൂ ചർച്ച ചെയ്യുമെന്ന് കരുതപ്പെടുന്നു

ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും

ദേശീയ ഭക്ഷൃ സുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കൂടുംബങ്ങൾക്കാണ് മൂന്ന് മാസത്തേയ്ക്ക് റേഷൻ കടകൾവഴി നാഫെഡ് പയറുവർഗ്ഗങ്ങൾ വിതരണം ചെയ്യുന്നത് ഈ പദ്ധതിയിലൂടെ ആറ് ലക്ഷം മെട്രിക് ടൺ പയറു വർഗ്ഗങ്ങളാണ് വിതരണം ചെയ്യുക ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്കും ആദ്യമാസ വിഹിതം ഏപ്രിലിലോ മെയ് ആദ്യവാരമോ ലഭിക്കും

വിവിധ രാജ്യങ്ങളിൽ ്നിന്നുള്ള ആരോഗ്യവിദഗ്ധർ പങ്കെടു ത്ത കോവിഡ് രാജ്യാന്തര പാനൽ ചർച്ച തിരുവനന്തപുരത്ത് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മുഖ്യമന്ത്രി

പ്രതിരോധത്തിനും ചികി ത്സയ്ക്കും ഒരു പോലെ ഊന്നൽ നൽകുന്ന കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം നീണ്ടകാലത്തെ പരിശ്രമത്തിലുടെ പക്വത നേടിയതാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോ ഗൃ സംവിധാനമാണ് ഉയർന്ന മാനവവികസന സൂചികകൾ നേടാൻ കേരളത്തെ സഹായിച്ചത് സംസ്ഥാനത്ത് രോഗ ബാധ കണ്ടതുമുതൽ കേരളത്തിന്റെ സർക്കാർ സംവിധാനം മുഴുവൻ ജാഗ്രതയോടെ പ്രവർത്തിച്ചു സംസ്ഥാനതല ത്തിലും ജില്ലാതലത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നു കേരളത്തിലുള്ള ശസ്ത്രജ്ഞരുടെയും പ്രവാസികളായ വിദ ഗ്ധരുടെയും ഉപദേശ നിർദേശങ്ങൾ ഇക്കാരൃത്തിൽ സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വീഡിയോ കോൺഫറൻസിൽ കാനഡ യു

കൊല്ലത്തും കോട്ടയത്തും മൂന്ന് പേർക്ക് വീതവും കണ്ണൂരിൽ ഒരാൾക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഇന്നലെ ഏഴ് പേർ രോഗമുക്തി നേടിയതായും മുഖ്യമന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ്ബാബു

നാല് ഗ്രാമ പഞ്ചായത്തുകളിൽ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ

കോർപ്പറേഷനുകളിലും മുൻസിപ്പാലിറ്റികളിലും തയ്യാറെടുപ്പുകൾ തിങ്കളാഴ്ചയോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു